പ്രധാന പങ്ക് വഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കാന്തൻ ദി ലവർ ഓഫ് പ്രകളർ മികച്ച ചിത്രം

ജയസൂര്യയും സൌബിൻ ഷാഹിറും മിക്ച്ച നടൻമാർ മികച്ച നടി നിമിഷ സജയൻ

ബംഗളൂരുവിൽ

നിയന്ത്രണരേഖയ്ക്ക് സമീപം അവ്നൂർ നൌഷേര കൃഷ്ണഖാട്ടി മേഖലകളിലാണ് പാക് സൈന്യം വെടിവയ്പ്പ് നടത്തിയത്

ഇന്ത്യൻ സൈന്യം ശക്തിയായി തിരിച്ചടിച്ചു അതിർത്തിക്കപ്പുറത്തെ പാക് ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യാ തകർത്തതിന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു പാക് സേനയുടെ വെടിനിർത്തൽ കരാർ ലംഘനം ഇന്ത്യൻ ഭാഗത്ത് ആൾനാശമുണ്ടായിട്ടില്ല

പ്രദേശവാസികളുടെ വീടുകളിൽ അവരെ മനുഷ്യകവചമാക്കി പാക്സ്സ്ക്യ്ൻ മോർട്ടാറുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തി ഇന്ത്യൻ സൈന്യം ശക്തമായി തീരിച്ചടിക്കുന്നുണ്ട് ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് പരിക്കേറ്റു

ബാരാമുള്ളയിലെ ഉറി മേഖലയിലും പാക് വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി റിപ്പോർട്ടുണ്ട് ഇവിടെയും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയാണ് അതേസമയം ശ്രീനഗർ ബുദ്ഗാം ജില്ലകളിൽ ഇന്ത്യൻ വ്യോമസേന നിരീക്ഷണ പറക്കൽ തുടരുകയാണ്

മേഖലയിൽ നിന്ന് സുരക്ഷാസേന ആയുധങ്ങളും സ്ഫോടകവസ്തുക്കളും കണ്ടെടുത്തു പ്രദേശത്ത് ഭീകരസാന്നിധ്യം ഉണ്ടെന്ന അറിയിപ്പിനെ തുടർന്ന് സൈനൃവും സി ആർ പി എഫും പോലീസും നടത്തിയ സംയുക്ത ആക്രമണത്തിലാണ് ഭീകരരെ വധിച്ചത് പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്

ലേ വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ പത്ത് വരെയുള്ള സർവീസൂക്ക്ർ നടത്തിയിരുന്നു ലേ കൂടാതെ ജമ്മു ശ്രീനഗർ പത്താൻകോട്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവ്വീസാണ് നിർത്തിവ്വിച്ചിരിക്കുന്നത്

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോ മേധാവി ഇന്റലിജൻസ് ബ്യൂറോ മേധാവി ആഭ്യന്തര സെക്രട്ടറി മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും പാക് ഭീകര കൃാമ്പിന് നേരെ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉന്നതതലയോഗം ചേരുന്നത്

ഇന്ത്യൻ സുരക്ഷാസേനയ്ക്കു ന്യൂരെയുണ്ടായ ഏറ്റവും പൈശാചികമായ ആക്രമണമായിരുന്നു പുൽവാമയിൽ നടന്നതെന്നും പാകിസ്ഥാൻ സംരക്ഷിച്ചു പോരുന്ന ജയ്ഷെ ഇ മുഹമ്മദ് എന്ന ഭീകര സംഘടനയാണ് ആക്രമണത്തിന് പിന്നിലെന്നും ശ്രീമതി സുഷമ സ്വരാജ് ചൂണ്ടിക്കാട്ടി ജെയ്ഷ ഇ മുഹമ്മദ് എന്ന സംഘടനയെ യു

എന്നാൽ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന പാക് മനോഭാവമാണ് ആക്രമണത്തിന് കാരണമെന്നും ശ്രീമതി സ്വരാജ് കുറ്റപ്പെടുത്തി റഷ്യൻ വിദേശകാരൃമന്ത്രി സെർജി ലവ് റോവുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തും പാക് ഭീകരകൃാമ്പുകൾക്ക് നേരെ ഇന്തൃ നടത്തിയ ആക്രമണം പുൽവാമ ആക്രമണം ജെയ്ഷ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ യൂ എൻ രാജ്യാന്തര കൂറ്റവാളിയായിട്ട പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് നടക്കുന്ന ത്രിരാഷ്ട്ര ഉച്ചകോടിയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത്

അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പാക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഷാ മഹമൂദ് ഖുറേഷിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് സൈനിക നടപടി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായും മൈക്ക് പോംപിയോ ചർച്ച നടത്തി കൊറിയൻ ഉപദ്വീപിലെ ആണവ നിരായുധീകരണം സംബന്ധിച്ച് വിയറ്റ്നാമിൽ അമേരിക്ക ഉത്തരകൊറിയ നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇന്ത്യ പാക് വിദേശകാരൃമന്ത്രിമാരുമായി ചർച്ച നടത്തിയത്

പ്രതിരോധത്തിനായി ഇന്ത്യ നടത്തുന്ന് പ്രവർത്തനങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ അദ്ദേഹം ഉറപ്പ് നിൽകി ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള പാക് തീവ്രവിട്ട സംഘടനകളെ ഇല്ലാതാക്കാൻ ഇന്ത്യയ്ക്കൊപ്പം പ്രവർത്തിക്കുമെന്നും അമേരിക്ക ഉറപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ആകാശവാണി

നിയന്ത്രണ രേഖ കടന്ന വ്യോമസേനാ ആക്രമണം നടത്തി തൊട്ടടുത്ത ദിവസമാണ് വിമാനം തകർന്നുവീണത്

പൈലറ്റും സഹപൈലറ്റും സംഭവസ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു പൈലറ്റുമാരുടെ പേരുവിവരങ്ങൾ ഔദ്യോഗിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല

ന്യൂഡൽഹിയിൽ ദേശീയ യൂത്ത് പാർലമെന്റ് ഉത്സവ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഇന്നത്തെ യുവതലമുറ ബഹുമുഖ ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലെത്തിക്കാൻ ഓരോരുത്തരും തീവ്രമായി പരിശ്രമിക്കണം സമൂഹ നൻമയ്ക്കായി മികച്ച ആശയവിനിമയ രീതികൾ വിപൂലീകരിക്കാൻ യുവിക്കളോട് പ്രധാനമന്ത്രി ആഹാനം ചെയ്തു

രാജ്യത്തെ കായികമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ആപ്പിൽ ലഭ്യമാകും

ഷെരീഫ് സി സംവിധാനം ചെയ്ത കാന്തൻ ദ ലവർ ഓഫ് കളറാണ് മികച്ച ചിത്രം മികച്ച രണ്ടാമത്തെ ചലച്ചിത്രം സൺഡേ ഈ ചിത്രത്തിന് ശ്രീ ശ്യാമപ്രസാദിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചു മികച്ച നടനുള്ള പുരസ്കാരം ഞാൻ മേരികൂട്ടി കൃാപ്റ്റൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് ജയസൂര്യയും സുഡാനി ഫ്രം നൈജീരിയിലെ അഭിനയത്തിന് സൌബിൻ ഷാഹിറും പങ്കിട്ടു മികച്ചു നടി നിമിഷ സജയൻ ചിത്രം ചോല ഒരു കുപ്രസിദ്ധ പയ്യൻ മികച്ച സ്വഭാവ നടൻ ജോജു ജോർജ് ചിത്രം ജോസഫ് ചോല മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം സുഡാനി ഫ്രം നൈജീരിയിലെ അഭിനയത്തിന് സാവിത്രി ശ്രീധരനും സരസ ബാലുശ്ശേരിയും പങ്കിട്ടു മികച്ച ഗായകൻ വിജയ് യേശുദാസ് ഗായിക ശ്രേയ ഘോഷാൽ സുഢ്രാനി ഫ്രം നൈജീരിയ സംവിധാനം ചെയ്ത സക്കറിയുക്കാണ് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം ഈ ചിത്രത്തിന് തന്നെയാണ് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചത് മികച്ച സംഗീത സംവിധായകനുള്ളൂ ആവാർഡ് വിശാൽ ഭരദ്വാജ് നേടി

എന്നാൽ പ്രാഥമിക അന്വേഷണം വേണ്ടെന്ന നിലപാടായിരുന്നു സുപ്രിംകോടതി നേരത്തെ ഈ വിധി പുനപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട എടുത്തത് മുൻ കേന്ദ്രമന്ത്രിമാരായ യശ്വന്ത് സിൻഹ അരുൺ ഷൂറി ആഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ എന്നിവർ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിക്കുക ഒപ്പുവയ്ക്കാത്ത രേഖയിൽ തെറ്റായ വിവരങ്ങൾ ഗവൺമെന്റ് സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കുകയായിരുന്നുവെന്നും അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു വിധിയെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു

കൌൾ എം

ജോസഫ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

ഇരു കേസുകളും തമ്മിൽ സമാനതകളുണ്ടെന്ന കർണാടക ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി കർണാടക ഹൈക്കോടതിയുടെ ധാർവാഡ് ബഞ്ചിന്റെ മേൽനോട്ടത്തിലായിരിക്കും കൽബുർഗി വധക്കേസിന്റെ അന്വേഷണമെന്നും സുപ്രീംകോടതി വൃക്തമാക്കി